ചന്ദ്രശേഖരൻ

സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച യു ഡി എഫ് ധവളപത്രം പുറത്തിറക്കി

രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ നട്ടെല്ലാണ് കാർഷിക വൃത്തിയെന്നും കർഷകരെ സഹായിക്കുന്നതിന് കേന്ദ്രഗവൺമെന്റ് നിരവധി നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞു

പാർലമെന്റ് പാസ്സാക്കിയ നിയമം അനുസരിക്കാൻ പറ്റില്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരണം ഒഴിഞ്ഞ് പുറത്ത് പോകു ന്നതല്ലെ നല്ലതെന്ന് കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ ചോദിച്ചു സംസ്ഥാനത്ത് പൌരത്വ ബിൽ നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി പറ യുന്നത് ഗാലറിയുടെ കൈയ്യടിക്ക് വേണ്ടിയാണെന്ന് അദ്ദേഹം ഫെയ്സ്ബുക്കിൽ കുറിച്ചു

എമ്മും ഇപ്പോൾ ജനാധിപത്യം മരിച്ചെന്ന് നിലവിളിക്കു ന്നതെന്നും മുരളീധരൻ ചോദിച്ചു

മൻമോഹൻസിം ഗിന് കത്തെഴുതിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പൌരത്വ ഭേദഗതി ബില്ലിനെതിരെ വ്യാഴാഴ്ച രാജ്യ വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ഇടതു പക്ഷ പാർട്ടികൾ ന്യൂഡൽഹിയിൽ അറിയിച്ചു മതനിരപേക്ഷതയ്ക്ക് വിരുദ്ധമായ കേന്ദ്രഗവൺമെന്റ് നീക്കത്തെ ശക്തമായി എതിർക്കുമെന്ന് സി

ഐ എം സി

ഐ

എൽ ഫോർവേഡ് ബ്ലോക്ക് ആർ

പി എന്നീ പാർട്ടികൾ സംയുക്ത പ്രസ്താവ നയിൽ വ്യക്തമാക്കി ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതനിരപേക്ഷ ജനാ ധിപത്യ രാജ്യമെന്ന അടിത്തറ തകർക്കുന്നതാണ് ബില്ലെന്ന് പ്രസ്താ വനയിൽ പറഞ്ഞു പൌരത്വ ഭേദഗതി നിയമം ചോദ്യം ചെയ്ത് തൃണമൂൽ കോൺഗ്രസും സുപ്രീംകോടതിയിൽ ഹർജി നൽകി പാർട്ടി നേതാവ് മഹുവ മൊയ്ത്രയാണ് ഹർജി നൽകിയത്

പൌരത്വ ഭേദഗതി ബിൽ ലോക്സഭയിലും സംസ്ഥാന നിയമസഭ കളിലും പട്ടികജാതി പട്ടിക വർഗ്ഗക്കാർക്ക് സംവരണം പത്ത് വർഷ ത്തേക്ക് കൂടി നീട്ടുന്ന ബിൽ ഉൾപ്പെടെ ഒട്ടേറെ സുപ്രധാന ബില്ലു കൾ പാസ്സാക്കിയാണ് സമ്മേളനം പിരിയുന്നത് ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഉച്ചവരെ നിർത്തിവെച്ചു രാജ്യത്തെ ബലാത്സംഗങ്ങളെക്കുറിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി നടത്തിയതായി പറയുന്ന പരാ മർശത്തിന്റെ പേരിൽ ബി ജെ പി അംഗങ്ങളാണ് ലോക്സഭയിൽ പ്രതിഷേധിച്ചത് മന്ത്രിമാർ ഉൾപ്പെടെ ബി

പി യിലെ അംഗങ്ങൾ രാഹുൽഗാന്ധി മാപ്പുപറയണമെന്നാവശ്യപ്പെട്ടു ഇതേ പ്രശ്നം തന്നെയാണ് രാജ്യസഭയും നിർത്തിവെക്കാനി ടയാക്കിയത് പാർലമെന്റ് ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് രാഷ്ട്ര പതി രാംനാഥ് കോവിന്ദ് ആദരാഞ്ജലി അർപ്പിച്ചു ഭീകരരിൽ നിന്ന് പാർലമെന്റിനെ രക്ഷിക്കാൻ ജീവത്യാഗം ചെയ്ത രക്തസാക്ഷി കളുടെ അസാമാന്യ ധൈര്യത്തിന് മുന്നിൽ അഭിവാദ്യം അർപ്പി ക്കുന്നുവെന്ന് രാഷ്ട്രപതി ടിറ്ററിൽ അറിയിച്ചു

ഹർജി ഫെബ്രുവരിയിൽ വാദം കേൾക്കാനായി ചീഫ് ജസ്റ്റിസ് എസ്

അസോസി യേഷൻ ഓഫ് ഡെമോക്രാററിക് റിഫോംസും കോമൺ കോസു മാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് പുതിയ പാസ്പോർട്ടുകളിൽ താമരചിത്രം ആലേഖനം ചെയ്തത് വ്യാജപാസ്പോർട്ട് തടയുന്നതിനുള്ള സുരക്ഷാ ക്രമീ കരണങ്ങളുടെ ഭാഗമാണെന്ന് വിദേശകാര്യമന്ത്രാലയം വ്യക്തമാ ക്കി സുര ക്ഷാ കാരണങ്ങൾ മുൻനിർത്തി ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ മാർഗരേഖകൾ അനു സരിച്ചാണ് ഇത്തരം ദേശീയ ചിഹ്നങ്ങൾ പാസ്പോർട്ടിൽ ഉൾപ്പെ ടുത്തുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ്കുമാർ പറഞ്ഞു

രാഘവൻ എം പി യാണ് പാസ്പോർട്ട് സംബന്ധിച്ച വിഷയം ലോക്സഭയിൽ ഉന്നയിച്ചത് വടക്കൻ ജില്ലകൾക്ക് കൂടുതൽ ലാന്റ്ട്രിബൂണൽ ഓഫിസുകൾ അനുവദിക്കുമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു വടകര ലാൻഡ് ട്രൈബ്യൂണൽ ഓഫീസ് ഉദ് ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് ലാന്റ് ട്രിബൂണൽ കേസുകൾ കൂടുതലെന്നും എൽ

എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നശേഷം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം പേർക്ക് പട്ടയം നൽകിയതായും ഇ ചന്ദ്രശേഖരൻ അറിയിച്ചു ധൂർത്തും അഴിമതിയുമാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ മുഖ മുദ്രയെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല തിരുവനന്തപു രത്ത് കുറ്റപ്പെടുത്തി കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടു മ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശ രാജ്യങ്ങളിലേക്ക് പറ ക്കുകയാണെന്നും ഹെലികോപ്റ്റർ ബുള്ളറ്റ് പ്രൂഫ് കാറുകൾ എന്നിവ വാങ്ങാനെടുത്ത തീരുമാനം അധിക സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു മൂന്നര വർഷം കൊണ്ട് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗം കുളംതോണ്ടിയ അവസ്ഥയിലായെന്നും യു ഡി എഫ് ധവളപത്രം പ്രകാശനം ചെയ്യവെ രമേശ് ചെന്നിത്തല ആരോപിച്ചു

ഡി എഫിന്റെ ധവളപത്രം സംസ്ഥാനത്തിന്റെ ധന സ്ഥിതി യുടെ നേർചിത്രമാണെന്ന് വി

സതീശൻ എം

എ തിരുവ നന്തപുരത്ത് പറഞ്ഞു അപകടകരമായ ധനസൂചികയാണ് സംസ്ഥാനത്തിന്റേതെന്നും ധന പ്രതിസന്ധിയിൽ നിന്നും കേര ളത്തെ കരകയറ്റുന്നതിന് അടങ്ങിയ നിർദേശങ്ങൾ ധവളപത്രത്തി ലുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു

ഇത് നികുതി പിരിവിലെ അരാജകത്യമാണ് കാണിക്കുന്നതെന്നും ധനമന്ത്രി നോക്കുകുത്തിയായി തീർന്നെന്നും വി

സതീശൻ കുറ്റപ്പെടുത്തി കേരളാ കോൺഗ്രസ് എമ്മിലെ പി ജെ ജോസഫ് ജോസ് കെ മാണി വിഭാഗങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി കൾ നാളെ ചേരും പി ജെ ജോസഫ് വിഭാഗം തൊടുപുഴയിലും ജോസ് കെ മാണി വിഭാഗം കോട്ടയത്തുമാണ് സംസ്ഥാന കമ്മിറ്റി വിളിച്ചുചേർത്ത സി എഫ് തോമസിനെ പാർട്ടി ചെയർമാനായി ത് തെരഞ്ഞെടുക്കുന്നതിനാണ് പി ജെ ജോസഫ് വിഭാഗം കമ്മിറ്റി ചേരുന്നത് എന്നാൽ ഈ നീക്കത്തിന് തടയിടാൻ തന്ത്രങ്ങൾ മെനയുകയാണ് ജോസ് കെ മാണി വിഭാഗത്തിന്റെ ഉദ്ദേശ്യം കൊച്ചിയിൽ ഐ എസ് എൽ ഫുട്ബോളിൽ കേരളാ ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ജംഷഡ്പൂർ എഫ് സി യെ നേരിടും കലൂർ ജവഹർലാൽ നെഹ്രു സ്റ്റേഡിയത്തിൽ രാത്രി ഏഴരയ്ക്കാണ് മത്സ രം ഏഴുകളിയിൽ ആറുപോയന്റുമായി ലീഗിൽ എട്ടാംസ്ഥാന ത്താണ് ബ്ലാസ്റ്റേഴ്സ്

സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് നിശാഗന്ധിയിൽ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ അർജന്റീനിയൻ സംവിധായകനായ ഫെർണാണ്ടോ സൊളാനസിന് സമഗ്ര സംഭാവനക്കുള്ള പുരസ്ക്കാരം മുഖ്യമന്ത്രി സമ്മാനിക്കും സംസ്ഥാന ഗവൺമെന്റും കേരള പ്രവാസിക്ഷേമ ബോർഡും സംയുക്തമായി ആവിഷ്ക്കരിക്കുന്ന പ്രവാസി ഡിവിഡന്റ് പദ്ധ തിയ്ക്ക് നാളെ തുടക്കമാകും തൃശൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യും മന്ത്രി വി എസ് സുനിൽകു മാർ അധ്യക്ഷനാകും

കിഫ്ബി വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത് മലമ്പുഴയിലെ നവീകരിച്ച മിൽമ കാലിത്തീറ്റ ഫാക്ടറി യുടെ ഉദ്ഘാടനം മന്ത്രി കെ രാജു ഇന്ന് ഉച്ചകഴിഞ്ഞ് നിർവഹിക്കും

സംസ്ഥാന വനം കായികമേളയുടെയും വാളയാർ ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിർമിക്കുന്ന ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങിന്റെയും ഉദ്ഘാടനം രാവിലെ മന്ത്രി നിർവഹിച്ചു ക്ഷീര കർഷകർ മുഖേന വിഷരഹിത പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കാൻ മിൽമ പദ്ധതി ആരംഭിക്കുമെന്ന് മിൽമ തിരുവനന്തപുരം മേഖല ചെയർമാൻ കല്ലട രമേശ് പറഞ്ഞു മിൽമ ഗ്രാമോത്സവവുമായി ബന്ധപ്പെട്ട് ക്ഷീരസംഘം പ്രസിഡണ്ടുമാരുടെയും സെക്രട്ടറിമാരുടെയും യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തണൽ ആത്മ ഹത്യാ പ്രതിരോധ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം നാളെ വൈകിട്ട് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ഇതിന്റെ ഭാഗമായ പുരുഷ പുനരധിവാസകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം എ പ്ര ദീപ് കുമാർ എം

എ യും വനിതാ പുനരധിവാസകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡണ്ട് ബാബു പറശ്ശേരിയും നിർവഹിക്കും ആത്മഹത്യാപ്രതിരോധം പുനരധിവാസ പ്രവർത്തനങ്ങൾ എന്നിവ സംബന്ധിച്ച ക്ലാസുകൾക്ക് പ്രത്യേക ഹാളും എരഞ്ഞി പ്പാലത്തെ നാലുനില കെട്ടിടത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട് തൃശൂർ നഗരസഭയും വ്യാപാരി സമൂഹവും സഹകരിച്ച് വിവിധ ഗവൺമെന്റ് വകുപ്പുകളുടെ പിന്തുണയോടെ സംഘടി പ്പിക്കുന്ന രാത്രികാല ഷോപ്പിങ് ഉത്സവമായ ഹാപ്പി ഡെയ്സ് ഷോപ്പിങ് ഫെസ്റ്റ് നാളെ തുടങ്ങും വൈകിട്ട് തേക്കിൻകാട് മൈതാ നത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫെസ്റ്റിന് തിരിതെളിയി ക്കും

ജില്ലയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഒരു പ്രധാനപ്പെട്ട തോടോ നീർച്ചാലോ തിരഞ്ഞെടുത്ത് ജനകീയമായി ശുചീകരിക്കുകയാണ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത്

അലക്സാണ്ടർ കൊല്ലം ഏരൂരിലെ ഗീത കരമന എന്നിവർ അർഹരായി ആകാശവാണി വാർത്തകളും മറ്റ് പരിപാടികളും കേൾക്കുന്നതിനും മറ്റുള്ളവരെ കേൾപ്പിക്കാൻ പ്രേരിപ്പിച്ചതിനു മാണ് ഇവരെ അവാർഡിനായി പരിഗണിച്ചതെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു

എം ബഷീർ നഗ റിൽ പൊതുസമ്മേളനം വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും

കൊച്ചി പാലാരിവട്ടത്ത് യുവാവ് റോഡപകടത്തിൽ മരിക്കാ നിടയാക്കിയ സംഭവത്തിൽ ജില്ലാകലക്ടർ എസ് സുഹാസ് മജി സ്റ്റീരിയൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് കെ